പ്രത്യേകപദവി റദ്ദാകും

ന് മുബൈയിലും ദക്ഷിണ ഗുജറാത്തിലും സാധാരണ ജീവിതം തടസപ്പെട്ടു

പരമ്പര ഇന്ത്യയ്ക്ക് സ്വന്തം

ശ്രീനഗറിലും സമീപ ജില്ലകളിലും ഇന്നലെ അർദ്ധരാത്രിയാണ് നിരോധനാജ്ഞ നിലവിൽ വന്നത്

ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുകയില്ല കശ്മീർ താഴ്വരയിൽ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങളും താൽക്കാലിമായി നിർത്തിവച്ചിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കും ജില്ലാ മജിസ്ട്രേറ്റിനും സാറ്റലൈറ്റ് ഫോൺ സൌകര്യം ഏർപ്പെടുത്തി അവശ്യസേവനത്തിലേർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ആവശ്യാനുസരണം യാത്ര ചെയ്യാൻ അവരുടെ ഐഡന്റിറ്റി കാർഡ് ഉപയോഗിക്കാവുന്നതാണ്

കിഷ്ത്വാർ രേസായി ദോദ ജില്ലകളിലും റമ്പാൻ ജില്ലയിട്ട്ല് ബഹിഹാൽ പ്രദേശത്തും നൈറ്റ് പട്രോളിംഗ് ഏർപ്പെടുത്തി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്

്ഗവർണ്ണർ സത്യപാൽ മാലിക് സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡിജിപി എന്നീവ്രുമായി ഇന്നലെ രാത്രി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷ്ാ ഇന്നലെ ഡൽഹിയിൽ ഉന്നത ഉദ്യോഗസ്ഥരു മായി കാശ്മീരിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി ഒരു മണിക്കൂർ നീണ്ട യോഗത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി രാജീവ് ഗൌബെ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു

തുടർന്ന് രാജ്യസഭ സമ്മേളിച്ച ഉടൻ ആഭ്യന്തരമന്ത്രി ഇത് സംബന്ധിച്ച പ്രസ്താവന നടത്തുകയായിരുന്നു

ലഡാക്കിൽ നിയമസഭ ഉണ്ടാകില്ല

കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ പ്രമേയത്തെ എതിർത്തു സംസ്ഥാനത്തെ നിലവിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യണമെന്നും പ്രമുഖ നേതാക്കൾ വീട്ടുതടങ്കലിലാണെന്നും പ്രതിപക്ഷനേതാവ് ഗുലാം നബി ആസാദ് പറഞ്ഞു ജമ്മുകാശ്മീർ സംബന്ധിച്ച് എല്ലാ വിഷയവും ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാണെന്നും ആഭ്യന്തര മന്ത്രി വ്യക്തമാക്കി

ജെ

മാർക്കായി സംഘടിപ്പിച്ച ദിദിന പരിശീലന പരിപാടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ

ദേശവും ദേശീയതയുമാണ് പ്രഥമമായി പരിഗണിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാവരുടേയും ക്ഷേമത്തിന് വേണ്ടിയായിരിക്കണം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കേണ്ടതെന്നും പ്രധാനമന്ത്രി വിശദീകരിച്ചു

യാസിൻ മാലിക്കിന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടു വരുന്ന വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമാണ് തീവ്ര വാദികൾക്ക് ധനസഹായം നൽകിയെന്ന കേസിലാണ് യാസിൻ മാലിക് ജയിലിലായത് യാസിൻ മാലിക്കിന്റെ ആരോഗൃനില വഷളാണെന്നും ഇടപെടൽ വേണമെന്നും ആവശ്യപ്പെട്ട് അടിയന്തര യാസിൻമാലിക്കിന്റെ ഭാരൃ രംഗത്തെത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് ശ്രീ ഗോയലിന്റെ പ്രതികരണം

രാവിലെ ഏഴിന് ആരംഭിച്ചു വോട്ടെടുപ്പ് വൈകിട്ട് ആറിന് സമാപിക്കും

എം

നേതാവിന്റെ സ്റ്റ്ഫായിയിൽ നിന്ന് വൻ തുക പിടിച്ചെടുത്തിനെ തുടർന്നാണ് ഏപ്പിലീൽ നടത്താനിരുന്ന വോട്ടെടുപ്പ് മാറ്റിവച്ചത്

വോട്ടെണ്ണൽ വെളളിയാഴ്ച നടക്കും

കേന്ദ്ര സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി പ്രഹ്ളാദ് സിംഗ് പട്ടേൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ സാംസ്കാരിക മാപ്പ് തയ്യാറാക്കുന്ന നടപടികൾ നടന്നുവരുന്നതായും അത് വേഗത്തിൽ പൂർത്തിയാകുമെന്നും അദ്ദേഹം അറിയിച്ചു സംയോജിത പ്രവർത്തനങ്ങൾ അക്കാദമിയുടെ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു സൻസ്കാർ ഭാരതി സ്ഥാപകൻ പത്മശ്രീ ബാബ യോഗേന്ദ്ര ലളിത കലാ അക്കാഡമി ചെയർമാൻ ഉത്തം പച്ചാർണെ പ്രമുഖ കലാകാരനായ വസുദേവ കമ്മത്ത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വിവിധ കലാ ചിത്ര പ്രദർശനവും ക്യാമ്പും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു

മഹാരാഷ്ട്രയിലെ വിവിധ പ്രദേശങ്ങളിലും ദക്ഷിണ ഗുജറാത്ത് കർണാടക എന്നിവിടങ്ങളിലാണ് കനത്ത മഴ ദുരന്തം വിതച്ചത് കൂടുതൽ വിവരങ്ങളുമായി സുവർണ മുംബൈയിൽ താനെ ഉൾപ്പെടെയുള്ള പ്രദേശ്ങ്ങളില്ല നിരവധി വീടുകളും വെള്ള ത്തിനടിയിലായി രക്ഷാപ്രവർത്തനങ്ങൾ ഉളർജിതമായി തുടരുന്നു കനത്ത മഴയെ തുടർന്ന് മുംബൈ താനേ പൽഘർ റായ്ഗിഡേ മേഖലകളിൽ സ്കൂളുകൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്

റ്റി ജയന്തി ജനത നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരം വഴിയുള്ള മുംബൈ സി എസ്

വഡോധര നവസരി ബറൂച്ച് നർമ്മദ വൽസാദ് ദാമൻ ജില്ലകളെയാണ് മഴക്കെടുതികൾ ഏറ്റവുമധികം ബാധിച്ചത് മിക്ക ഡാമുകളും കവിഞ്ഞൊഴുകിയതോടെ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമായി

യാദ്ഗിർ റെയ്ച്ചൂർ വിജയപുര എന്നിവിട ങ്ങളും ബെൽഗാവി ജില്ലയിലെ അത്താനി ബഗൽകോട്ട് ബേലാഗവി എന്നീ പ്രദേശങ്ങളിലുമാണ് മുഖ്യമന്ത്രി നിരീക്ഷണം നടത്തിയത്

ന്യൂസ്ഡെസ്ക് ആകാശവാണി

ഇന്നലെ വൈകിട്ട് കോട്ടപ്പളളിക്ക് സമീപം മിഡ്ജിൽ മണ്ടലിലാണ് അപകടം നടന്നതെന്ന് പൊലീസ് പറഞ്ഞു

ഡെക്വർത്ത് ലൂയിസ് നിയമപ്രകാരമാണ് ഇന്ത്യയുടെ ജയം

തെറ്റായി എതിർദിശകളിൽ വന്ന കാർ മറ്റ് മൂന്ന്കാറുകളിൽ ഇടിച്ചാണ്സ്ഫോടനം ഉണ്ടായത്

ഇത് ഇന്റിയും കൂടാനുളള സാധ്യതയുണ്ട്